ഉദ്ഘാടനവും ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവ്വഹിച്ചു

സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണിറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി

തുടക്കമാകും ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് സമാപനം

തുറക്കും

ഓഫ് റോഡ് ജീപ്പ് സവാരി വീണ്ടും ആരംഭിച്ചു

പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി ശിവഗിരി കണ്ണന്താനം ശിവഗിരി തീർത്ഥാടന സർക്യൂട്ടിന്റെ ആദ്യഘട്ട നിർമ്മാണോത്ഘാടനവും ശിലാസ്ഥാപനവും ശിവഗിരിയിൽ കേന്ദ്ര സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവ്വഹിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുദേവ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം

ചെമ്പഴന്തി നാരായണ ഗുരുകുലം അരുവിപ്പുറം ക്ഷേത്രം കുന്നുംപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ശിവഗിരി മഠം എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്

ഉന്നത വിദ്യാഭ്യാസവകുപ്പ് മന്ത്രി കെ

ജലീൽ അദ്ധ്യക്ഷത വഹിച്ചു സിനിമ ടിക്കറ്റ് സിനിമ ടിക്കറ്റ് നികുതി വർധനവില്ലെ പരാതി സംബന്ധിച്ച് സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി നികുതി വർധനാ വിഷയം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് മുഖൃമന്ത്രി ്ഉറപ്പു നൽകി കഴിഞ്ഞ സംസ്ഥാന ബജ്റ്റിലാണ് തിദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങൾക്ക് സിനിമ ടിക്കറ്റിനുമേൽ അധിക പത്തു ശതമാനം വിനോദ നികുതി ഏർപ്പെടുത്താ്നുള്ള നിർദ്ദേശം വന്നത്

ആയിരക്കണക്കിന് വിശ്വാസികളാണ് പമ്പ മണൽപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് എത്തി കൊണ്ടിരിക്കുന്നത് അതേസമയം അയിരൂർ ചെറുകോൽപ്പുഴയിൽ ഒരാഴ്ചയായി നടന്നിരുന്ന പ്രശസ്തമായ ഹിന്ദു മത പരിഷത്തിന് ഇന്നു സമാപനമാകും മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പരിഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗീസ്

ഭക്തർക്കാവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു സന്നിധാനത്ത് പോലീസ് ആസ്ഥാനം സ്പെഷ്യൽ സെൽ എസ്

വി അജിത്തിന്റേയും പമ്പയിൽ എസ്

മഞ്ജുനാഥിന്റെയും നിലയ്ക്കലിൽ കൊല്ലം സിറ്റി ജില്ലാ പോലീസ് മേധാവി പി

ലോക്സസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡ്ടി എഫി ന്റ സാധ്യത ലീഗിന്റെ മൂന്നാം സീറ്റ് എന്നിവ ചർച്ച് വിഷ്യമാണ് സംസ്ഥാന സമിതി നേതാക്കൾക്കു പുറമേ എം എൽ എംമാർ എം പി മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു

സാംസ്കാരിക വകുപ്പ് പാലക്കാട് നിർമിക്കുന്ന വി

സുരക്ഷ ക്രമീകരണങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ

ഉച്ചയ്ക്കുശേഷം മൂന്ന് മണിക്ക് നടക്കുന്ന ഫൈനലിൽ ജാർഖണ്ഡും ഹരിയാനയും ഏറ്റുമുട്ടും

രാജ സ്പോർട്സ് സ്കൂളുകളിലേക്കും പ്രവേശനത്തിനുള്ള ജില്ലാതല സെലക്ഷൻ ട്രയൽ നാളെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കും

രാജേന്ദ്രൻ എം

എ പരസ്യമായി അപമാനിച്ചിരിക്കയാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

എസ് ശാസ്ത്രമേള മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന പട്ടിക വർഗ്ഗ വികസന വകുപ്പിന്റെ ധന സഹായത്തോടെ കേരളശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ നടത്തുന്ന എം ആർ എസ് ശാസ്ത്രമേള നാളെ ആരംഭിക്കും

പ്രോജക്റ്റുകൾ കിസ് പ്രോഗ്രാമുകൾ എന്നിവയിൽ മികവു തെളിയിച്ചതും പ്രബന്ധം സമർപ്പിച്ചവരുമായ കുട്ടികളും ശാസ്ത്ര അധ്യാപകരും പങ്കെടുക്കും

ബസന്ത് പഞ്ചമിയോടനുബന്ധിച്ച് ഇന്ന് പുലർച്ചെ കുംഭമേളയിൽ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചു